സമുദ്രാന്തർഭാഗ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും

കേരളത്തിൽ കോവിഡ് സ്മ്പർക്കബാധയിൽ തുടർച്ചയായ വർദ്ധന

പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി

നടത്താൻ ലബനനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണൾഡ് ടംപ്

ദ്വീപുകളിലെ വിനോദസഞ്ചാരത്തിനും തൊഴിലവസരങ്ങൾക്കും ആക്കം കൂട്ടാനും സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിക്ക് പ്രചോദനം നൽകാനും അതിവേഗ ടെലികോം ബ്രോഡ്ബാന്റ് ബന്ധം സഹായകരമാകും

എല്ലിന്റെ ് നേതൃത്വത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്

കർഷകരെ സ്വയംപര്യാപ്തരാക്കുന്നതിനും കടാശ്ചാസത്തിനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി വിളവെടുപ്പിനുശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഗ്രാമീണ മേഖലകളിൽ സംഭരണ സൌകര്യം സൃഷ്ടിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലേറെ പേർ ചികിത്സയിലുണ്ട്

ഒറ്റ ദിവസം കൊണ്ട് ഏഴ് ലക്ഷത്തിലധികം കൊറോണ വൈറസ് സാമ്പിളുകളുടെ പരിശോധന നടത്തിയതിലൂടെ രാജ്യം ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ അമേരിക്കയുടെ തൊട്ടു പിന്നിലുള്ള ബ്രസീലിൽ മരണസംഖ്യ ഒരു ലക്ഷം കവിഞ്ഞു മുപ്പത് ലക്ഷത്തിലധികം കോവിഡ് രോഗികളിലാണ് ബ്രസീലിൽ ഉള്ളത്

തദ്ദേശീയ ഉത്പാദനത്തിന് പ്രാമുഖ്യം നൽകി രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ ഊന്നിയതാണ് പദ്ധതി

തദ്ദേശീയമായ പ്രതിരോധ സാമഗ്രി നിർമ്മാണത്തിന് ഇത് ആക്കം കൂട്ടുമെന്നും അദ്ദേഹം വൃക്തമാക്കി

രാജ്യത്തെ ഡിജിറ്റലായി ശാക്തീകരിക്കുന്നതിനും വിജ്ഞാന്ത്തിലധിഷ്ഠിതമായ സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റുന്നുതിനും എൻ ഡി എ സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്

കഴിഞ്ഞ അഞ്ചുവർഷം കൊണ്ട് ഈ മേഖലയിൽ വിപ്തവാത്മകമായ പരിവർത്തനങ്ങളാണ് ഉണ്ടായത്

നാളെയാണ് ലോക ആന ദിനം

താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റി കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

ജലനിരപ്പ് ഉയർന്നതിനാൽ ഇന്നലെ തുറന്ന പമ്പ ഡാമിന്റെ ഷട്ടറുകൾ അടച്ചു

പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയരുന്നതും മണ്ണ് ഇടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടും റാന്നി താലൂക്കിൽ നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്

മഴക്കെടുതിയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ പത്തും ആലത്തൂർ താലൂക്കിലും ഒറ്റപ്പാലത്തും ഒന്ന് വീതവും ദുരിതാശ്വാസ കൃാമ്പുകൾ തുറന്നു

വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ പോത്തുണ്ടി ഡാമിൽ നിന്നും ഇന്ന് നിയന്ത്രിത അളവിൽ ജലം തുറന്നുവിടാൻ സാധ്യത ഉണ്ടെന്ന് എക്സിക്യൂട്ടിവ് എൻജിനിയർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി മൂന്നാം ദിവസവും ഇന്നലെ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചു

മഞ്ഞും മഴയുമടക്കം പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നു

വലിയ നാശ നഷ്ട്ടങ്ങളില്ല

മിക്ക യാത്രാ ചരക്കു കപ്പലുകളും വൈകിയാണ് ദ്വീപുകൾക്കിടയിൽ യാത്രക്യൂർ നടത്തുന്നത്

രാജ്യത്ത് പരിഷ്ക്കരണം ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ അമേരിക്കയുടെ പിന്തുണ ട്രംപ് അറിയിച്ചു